വാർത്തകൾ വിശദമായി സ്വന്തമായി വീടില്ലാത്ത പാവപ്പെട്ടവരാരും കേരളത്തിൽ ഉണ്ടാകരുതെന്നാണ് ആഗ്രഹിക്കുന്നതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു ആ ലക്ഷ്യത്തോടെ സംസ്ഥാന ഗവൺമെന്റിന്റെ ലൈഫ് പദ്ധതിയുടെ മാനദണ്ഡങ്ങളിൽ പെടാത്തവർക്കും വീട് നിർമ്മിച്ചു നൽകുന്ന പദ്ധതികൾ നടപ്പാക്കുമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി കൊച്ചി റോട്ടറി ഇന്റർനാഷണൽ ശതാബ്ദി ആഘോഷങ്ങളുടെ ഭാഗമായി നടപ്പാക്കുന്ന വിവിധ സാമൂഹ്യക്ഷേമ പദ്ധതികളുടെ ഉദ്ഘാടനം നിർവ്വഹിക്കുകയായിരുന്നു മുഖ്യമന്ത്രി

വിവിധ തലങ്ങളിൽ നിസ്തൂലവും മാതൃകാപരവുമായ പ്രവർത്തനം കാഴ്ചവെയ്ക്കുന്ന റോട്ടറി ഇന്റർനാഷണലുമായി സഹകരിച്ച് പ്രവർത്തിക്കുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു പ്രളയബാധിതർക്കായി ആംസ്റ്റർഹോംസ് നിർമിച്ച നൂറ് വീടുകളുടെ താക്കോൽദാനം മറ്റൊരു ചടങ്ങിൽ മുഖ്യമന്ത്രി നിർവഹിച്ചു രുദ ലൈഫ് പദ്ധതിയിൽ രണ്ടു ലക്ഷത്തി പതിനായിരത്തിലേറെ വീടുകൾ പണിതുവെന്ന മുഖ്യമന്ത്രിയുടെ അവകാശവാദം സത്യവിരുദ്ധമാണെന്ന് കോൺഗ്രസ് നിയമസഭാകക്ഷി ഉപനേതാവ് കെ സി ജോസഫ് കണ്ണൂരിൽ പ്രസ്താവനയിൽ പറഞ്ഞു ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനാണ് മുഖ്യമന്ത്രി ശ്രമിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു ദേദ പതിനാലാം കേരള നിയമസഭയുടെ പത്തൊൻപതാം സമ്മേളനം നാളെ തുടങ്ങും അടുത്ത സാമ്പത്തിക വർഷത്തെ ബജറ്റിലെ ഉപധനാഭ്യർഥനകൾ സംബന്ധിച്ച ചർച്ചയും വോട്ടെടുപ്പുമാണ് സമ്മേളനത്തിന്റെ മുഖ്യ അജണ്ട

ആറ്റുകാൽ പൊങ്കാല പ്രമാണിച്ച് ഈ മാസം ഒൻപതിന് സഭ ചേരില്ല ദേദ ആറ്റുകാൽ പൊങ്കാല മഹോത്സവത്തിന് തുടക്കമായി

ആറ്റുകാൽ പൊങ്കാലയുടെ ഒരുക്കങ്ങൾ ഇന്നലെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിൽ തിരുവനന്തപുരത്ത് ചേർന്ന ഉന്നതതലയോഗം വിലയിരുത്തി

രുദ തിരുവനന്തപുരത്തെ ചട്ടമ്പി സ്വാമി സ്മാരക മണ്ഡപവും തീർത്ഥപാദ മണ്ഡപവും സംരക്ഷിക്കുമെന്ന് മന്ത്രി കടകംപളളി സുരേന്ദ്രൻ പറഞ്ഞു തീർത്ഥപാദമണ്ഡപത്തിലെ പാത്രക്കുളം കയ്യേറ്റം ഒഴിപ്പിക്കുക മാത്രമാണ് ഗവൺമെന്റ് ചെയ്തത് വിദ്യാദിരാജ ട്രസ്റ്റ് ആവശ്യപ്പെട്ടാൽ ചട്ടമ്പി സ്വാമി സ്മാരകം തിരിച്ചു നൽകുമെന്നും മന്ത്രി തിരുവനന്തപുരത്ത് പറഞ്ഞു ബിജെപി വിഷയത്തെ രാഷ്ട്രീയവൽക്കരിക്കുന്നത് ശരിയല്ലെന്ന് മന്ത്രി അഭിപ്രായപ്പെട്ടു ദേശ തിരുവനന്തപുരം ചട്ടമ്പി സ്മാരകത്തിലെ പാത്രക്കുളം ഏറ്റെടുത്ത ഗവൺമെന്റ് നടപടിക്കെതിരെ വിദ്യാദിരാജ സഭ ഹൈക്കോടതിയെ സമീപിക്കുമെന്ന് റിപ്പോർട്ട് നടപടി മുന്നറിയിപ്പ് പോലും ഇല്ലാതെയാണെന്ന് സഭാ ഭാരവാഹികൾ പറഞ്ഞു ദരദ സ്ത്രീ വിദ്യാഭ്യാസം പ്രോത്സാഹിപ്പിക്കാനും വനിതാ ശാക്തീകരണത്തിനുമായി കേന്ദ്ര ഗവൺമെന്റ് ഒട്ടേറെ പദ്ധതികൾ നടപ്പാക്കി വരുന്നു

സമത്വത്തിന് നടപടി സ്വീകരിച്ച് ലോകത്ത് ലിംഗ സമത്വം ഉറപ്പുവരുത്തുക എന്നതാണ് ഈ മാസം എട്ടിന് അന്താരാഷ്ട്ര വനിതാദിനം ആചരിക്കുമ്പോൾ പ്രധാന മുദ്രാവാക്യം

ഇന്ത്യയെപ്പോലെ വികസ്വര രാജ്യത്ത് പെൺകുട്ടികൾക്ക് വിദ്യാഭ്യാസം നൽകുന്നതിനും അതുവഴി രാഷ്ട്ര നിർമാണത്തിൽ അവരെ പങ്കാളികളാക്കുന്നതിനും പ്രാധാന്യമുണ്ട് രുദ അന്താരാഷ്ട്ര വനിതാ ദിനാചരണത്തിന്റെ ഭാഗമായി കോളജുകളിൽ വിവിധ പരിപാടികൾ സംഘടിപ്പിക്കാൻ യുജിസി നിർദേശിച്ചു സ്ത്രീ ശാക്തീകരണം ലക്ഷ്യമിട്ട് ശില്പശാലകൾ പ്രഭാഷണങ്ങൾ മാരത്തൺ തുടങ്ങിയവ ഈ മാസം എട്ട് വരെ നടത്താനാണ് നിർദേശം

അഫ്ഗാനിസ്ഥാനിൽ സമാധാനവും സുരക്ഷയും ഉറപ്പാക്കാനും അക്രമങ്ങൾ അവസാനിപ്പിക്കുന്നതിനും പൂർണ്ണ പിന്തുണ നൽകുമെന്ന് വിദേശകാര്യ മന്ത്രാലയ വക്താവ് രവീശ്കുമാർ ന്യൂഡൽഹിയിൽ പറഞ്ഞു ദോഹയിൽ ഇന്നലെയാണ് യു എസും താലിബാനും സമാധാന കരാറിൽ ഒപ്പു വെച്ചത്

പ്രസ്തുത സംഭവങ്ങളെ പറ്റി വിശദമായ അന്വേഷണവും പഠനവും നടത്തുന്നതിന് അന്നുതന്നെ കമ്മീഷനെ നിയമിച്ചു റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി

മുഹമ്മദ് ഷമി നാലും ജസ്പ്രീത് ബുംറ മൂന്നും ഉമേഷ് യാദവ് ഒന്നും വിക്കറ്റെടുത്തു രവീന്ദ്ര ജഡേജ രണ്ട് വിക്കറ്റ് വീഴ്ത്തി

ദർദ ഇന്ത്യൻ സൂപ്പർലീഗ് ഫുട്ബോൾ ആറാം സീസണിലെ രണ്ടാം സെമിയിൽ ഇന്ന് ആദ്യപാദ മത്സരത്തിൽ ബെംഗളൂരു എഫ് സി എ ടി കെയെ നേരിടും

ഇന്നലെ നടന്ന ആദ്യ സെമിയുടെ ആദ്യപാദത്തിൽ ചെന്നൈയിൻ എഫ് സി എഫ് സി ഗോവയെ ഒന്നിനെതിരെ നാലു ഗോളുകൾക്ക് തോൽപിച്ചു ദേദ കേരള പ്രീമിയർ ലീഗ് ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിന്റെ സെമിഫൈനൽ മത്സരങ്ങൾ ഇന്ന് നടക്കും വൈകീട്ട് നാല് മണിക്കാണ് കിക്കോഫ് കോഴിക്കോട് കോർപ്പറേഷൻ സ്റ്റേഡിയത്തിൽ ഗോകുലം എഫ് സിയും കേരള പോലീസും ഏറ്റുമുട്ടും തിരൂർ രാജീവ്ഗാന്ധി സ്റ്റേഡിയത്തിൽ നടക്കുന്ന മത്സരത്തിൽ സാറ്റ് തിരൂർ കേരള ബ്ലാസ്റ്റേഴ്സിനെ നേരിടും

ദുദ കോഴിക്കോട് നടക്കുന്ന ഫിയാസ്റ്റോ അഖിലേന്ത്യാ ബാസ്ക്കറ്റ് ബാൾ ടൂർണമെന്റിൽ ഇന്ന് വൈകീട്ട് അഞ്ച് മണിക് നടക്കുന്ന ആദ്യമത്സരത്തിൽ ഇന്ത്യൻ ഓവർസീസ് ബാങ്ക് ചെന്നൈ സെൻട്രൽ റയിൽവേ മുംബൈയെ നേരിടും

ഏഴു ദിവസം നീണ്ടുനിൽക്കുന്ന പുരുഷ വനിതാ മത്സരങ്ങൾ ലീഗ് കം നോക്കൌട്ട് അടിസ്ഥാനത്തിലാണ് ദർ റൺ ഫോർ യൂണിറ്റി മുദ്രാവാക്യവുമായി സംസ്ഥാന കായിക വകുപ്പ് സംഘടിപ്പിക്കുന്ന സ്പോട്സ് കേരള മാരത്തൺ കണ്ണൂരിൽ പൂർത്തിയായി രാവിലെ കലക്ടറേറ്റ് മൈതാനിയിൽ മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി ഫ്ളാഗ് ഓഫ് ചെയ്തു നാല് വിഭാഗങ്ങളിലായി നടന്ന മത്സരത്തിൽ നിരവധി പേർ പങ്കെടുത്തു സമാപന സമ്മേളനം മന്ത്രി ഇ പി ജയരാജൻ ഉദ്ഘാടനം ചെയ്തു ദേഴ മന്ത്രി ജെ

കുട്ടിയുടെ മരണത്തെക്കുറിച്ച് അന്വേഷിക്കുന്നതിന് പ്രത്യേക സംഘത്തെ നിയോഗിച്ചതായി മന്ത്രി പറഞ്ഞു മരണവുമായി ബന്ധപ്പെട്ട സംശയങ്ങളും വിവരങ്ങളും ആർക്കും അന്വേഷണ സംഘവുമായി പങ്കുവയ്ക്കാമെന്നും മന്ത്രി വ്യക്തമാക്കി ബിജെപി നേതാവ് കുമ്മനം രാജശേഖരൻ ഉച്ചയ്ക്ക്ശേഷം ദേവനന്ദയുടെ വീട് സന്ദർശിക്കും ദേദ മലപ്പുറം നാടുകാണിയിൽ ഓടിക്കൊണ്ടിരുന്ന ലോറിയ്ക്ക് തീപിടിച്ചു മൈസുരുവിൽ നിന്ന് കൊച്ചിയിലേക്ക് പഞ്ചസാരയുമായി വന്ന ലോറിയ്ക്കാണ് തീ പിടിച്ചത് ടയർ പഞ്ചറായതിനെ തുടർന്ന് ഇരുമ്പ് ഭാഗം റോഡിലുരഞ്ഞാണ് തീപിടുത്തമുണ്ടായതെന്നാണ് റിപ്പോർട്ട്

തുഞ്ചൻ സ്മാരക ട്രസ്റ്റും യുവ കലാ സാഹിതിയും ചേർന്ന് തൃശൂരിൽ സംഘടിപ്പിച്ച ആലങ്കോടിന്റെ ആകാശങ്ങൾ ആദരിക്കൽ പരിപാടി ഉദ്ഘാടനംചെയ്യുകയായിരുന്നു അദ്ദേഹം സിപിഐ സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ മുഖ്യപ്രഭാഷണവും ഉപഹാര സമർപ്പണവും നടത്തി ദരദ പൊലീസ് ചീഫ് സ്റ്റോറിൽ നിന്നും എസ്എപി യിലേക്ക് നൽകിയ മുഴുവൻ വെടിയുണ്ടകളും നാളെ ക്രൈംബ്രാഞ്ച് പരിശോധനക്ക് ഹാജരാക്കാൻ നിർദേശം സിഎജി റിപ്പോർട്ടിലും അന്വേഷണത്തിലും എണ്ണത്തിൽ വ്യത്യാസം കണ്ടെത്തിയതിനെ തുടർന്നാണ് ക്രൈംബ്രാഞ്ച് നേരിട്ട് പരിശോധിക്കുന്നത് ദേദ ജല ഗുണനിലവാര പരിശോധനയുടെ ഭാഗമായി ഹരിതകേരളം മിഷൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ പരിശോധനാ ലാബുകൾ സജ്ജമാക്കും വിദ്യാഭ്യാസ വകുപ്പിന്റെ സഹകരണത്തോടെ ഹയർ സെക്കന്ററി സ്കൂളിലെ സയൻസ് ലാബുകളോടനുബന്ധിച്ചാണ് ലാബുകൾ സ്ഥാപിക്കുകയെന്ന് ഹരിതകേരള മിഷൻ എക്സിക്യൂട്ടീവ് വൈസ് ചെയർപേഴ്സൺ ഡോ ടി എൻ സീമ അറിയിച്ചു ദുദ കൊച്ചിയിൽ ലീന മരിയാപോളിനെതിരായ ബ്യൂട്ടിപാർലർ വെടിവെപ്പ് ക്വട്ടേഷൻ കേസിൽ പ്രതിയായ രവിപൂജാരിയെ ക്രൈംബ്രാഞ്ച് മേധാവി ടോമിൻ ജെ തച്ചങ്കരി ബംഗളുരുവിൽ ചോദ്യം ചെയ്തു കൂടുതൽ ചോദ്യം ചെയ്യുന്നതിനായി ഇയാളെ കേരളത്തിലേയ്ക്ക് കൊണ്ടുവരും സെനഗലിൽ ആഡംബര ജീവിതമാണ് ഇയാൾ നടത്തിയിരുന്നത്

എയർ കസ്റ്റംസ് ഇന്റലിജൻസിന്റെ പരിശോധനയിലാണ് ഒന്നേമുക്കാൽ കിലോ സ്വർണം പിടികൂടിയത് ദേശ കേന്ദ്രം നൽകിയ തുകയുടെ കണക്ക് പറയാൻ ധാർമ്മികത കേരളം കാട്ടണമെന്ന് മിസോറം മുൻ ഗവർണർ കുമ്മനം രാജശേഖരൻ പറഞ്ഞു ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രന് ജന്മനാടായ കോഴിക്കോട് ഉള്ളിയേരിയിൽ നൽകിയ സ്വീകരണ പരിപാടി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം ദേദ ലക്ഷദ്വീപിലെ ഇന്ത്യൻ ഓയിൽ കോർപറേഷന്റെ ആറാമത്തെ എൽ പി ജി ഗ്യാസ് സിലിണ്ടർ ഗോഡൌൺ അഗത്തിയിൽ അഡ്മിനിസ്ട്രേറ്റർ ദിനേശ്വർ ശർമ്മ ഉദ്ഘാടനം ചെയ്തു

മറ്റ് മൂന്ന് ദ്വീപുകളിൽ ഗ്യാസ് സിലിണ്ടർ ഗോഡൌണുകൾ നിർമ്മിക്കാൻ നടപടി പുരോഗമിക്കുകയാണെന്ന് ഐ ഒ സി അധികൃതർ അറിയിച്ചു